ബുറേവി ചുഴലിക്കാറ്റ് കേരളത്തിൽ എത്തുന്നതിന് മുമ്പുതന്നെ ശക്തി കൂറഞ്ഞ് ന്യൂനമർദ്ദ്മായി മാറിയേക്കാൻ സാധ്യത സംസ്ഥാനത്ത് ഒറ്റ്പ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത തുടരും ഒന്നാംഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി മൂന്ന് ദിവസങ്ങൾ മാത്രം പരസ്യപ്രചാരണം ് മറ്റന്നാൾ വൈകിട്ടോടെ അവസാനിക്കും

വില കുറഞ്ഞതും ഫലപ്രദവുമായ കോവിഡ് വാക്സിനു വേണ്ടി ലോകം ഇന്ത്യയിലേക്ക് ഉറ്റു നോക്കുകയാണെന്നും സർവ്വകക്ഷിയോഗത്തെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി പറഞ്ഞു

വോയിസ് രാജ്യത്ത് വികസിപ്പിച്ചു വരുന്ന എട്ട് വാക്സിനുകൾ പരീക്ഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി

സമീപ ഭാവിയിൽ തന്നെ എല്ലാവരിലും വാക്സിൻ എത്തിക്കുന്നതിനുള്ള മാർഗ്ഗങ്ങൾ രാജ്യത്ത് ഉരുത്തിരിയുമെന്നും അദ്ദേഹം പ്രതീക്ഷ പങ്കുവച്ചു വാക്സിൻ നൽകുന്നതിനുള്ള ശക്തമായ ശൃംഖല രാജ്യത്ത് നിലവിലുണ്ടെന്നും മതിയ്ക്ക് ശീതീകരണ സംഭരണ വിതരണ സംവിധാനങ്ങൾ ത്യൂറ്റാ്ക്കി വരികയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

വാക്സിൻ നുൽകുന്നതിന്റെ മുൻഗണനാ ക്രമം സംസ്ഥാനങ്ങളോട് ചർച്ചു ചെയ്ത് തീരുമാനിക്കുമെന്നും പ്രധാനമന്ത്രി സർവകക്ഷിയ്ട്ഗത്തെ അറിയിച്ചു വാക്സിന്റെ വിലയും സംസ്ഥാനങ്ങളോട് ചർച്ച ചെയ്ത ശേഷമാവും തീരുമാനിക്കുക മൂന്നു മണിക്കൂറോളം നീണ്ട സർവകക്ഷി യോഗത്തിൽ അമിത് ഷാ രാജ്നാഥ്സിങ്ങ് ഹർഷ് വർദ്ധൻ തുടങ്ങിയ കേന്ദ്ര മന്ത്രിമാരും കോൺഗ്രസ് നേതാക്കളായ അധിർ രഞ്ജൻ ചൌധരി ഗുലാം നബി ആസാദ് എൻസിപി നേതാവ് ശരത് പവാർ തുടങ്ങിയവരും പങ്കെടുത്തു

ബുറേവി ചുഴലിക്കാറ്റ് കേരളത്തിലെത്തും മുൻപ് തന്നെ ന്യൂനമർദ്ദമായി ദുർബലപ്പെടുമെന്ന് കാലാവസ്ഥാ വകുപ്പ് നിലവിൽ ശക്തി കുറഞ്ഞ് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയ ചുഴലിക്കാറ്റ് കഴിഞ്ഞ ആറ് മണിക്കൂറായി രാമനാഥപുരത്തിന് സമീപം തന്നെ തുട്ടരുകയാണ്

കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായതോ അതിശക്തമായതോ ആയ മഴക്ക് സൌധ്യ്തയുണ്ട്

കേരളി തീരത്ത് മൽസ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന നിരോധനം തുടരും

മുന്നറിയിപ്പിനെ തുടർന്ന് അടച്ചിരുന്ന തിരുവനന്തപുരം വിമാനത്താവളം വൈകിട്ട് നാല് മണി മുതൽ പൂർണ രീതിയിൽ പ്രവർത്തനം പുനരാരംഭിച്ചു കാലാവസ്ഥ കൊല്ലം കൊല്ലം ജില്ലയിലും ഇന്ന് തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു കാറ്റിന് നേരിയ സാധ്യത പോലും ഇല്ലാത്ത കാലാവസ്ഥയാണ് ജില്ലയിൽ ഇപ്പോഴും തുടരുന്നത് കോട്ടയം കാലാവസ്ഥ കോട്ടയം ജില്ലയിൽ പകൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നെങ്കിലും ജില്ലയിലെവിടെയും ഇന്ന് കാറ്റോ മഴയോ ഉണ്ടായില്ല എന്നാൽ ജില്ലയിലെ മലയോര മേഖലയിൽ ജാഗ്രത തുടരുന്നു

മലപ്പുറത്തും നാളെ ഓറഞ്ച് അലർട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം മലപ്പുറം ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങ്ളിലേക്കുള്ള ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന് മൂന്ന് ദിവസ്ട് മാത്ര്മവശേഷിക്കേ അന്തിമഘട്ട പ്രചാരണവുമായി മുന്നണികൾ

ജില്ലകളിൽ ചുഴലിക്കാറ്റ് മുന്നറിപ്പിനെ തുടർന്ന് ജാഗ്രത പ്രഖ്യാപിച്ചിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പ് ചൂടിനെ ഇത് കാര്യമായി ബാധിച്ച മട്ടില്ല

ആദ്യ ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിലെ പരസ്യ പ്രചാരണം മറ്റന്നാൾ വൈകിട്ട് ആറു മണിയോടെ അവസാനിക്കും

ഈ സാമ്പത്തിക ് വർഷത്തിന്റെ പകുതിയോടെ സമ്പദ്വൃവസ്ഥ റെക്കോഡ് വളർച്ച കൈവരിക്കുമെന്നും റിസർവ് ബാങ്ക് ഗവർണർ ഡോ

രാജ്യത്തിനു വേണ്ടി പടപൊരുതി വീരമൃത്യു വരിച്ച നാവിക സേനാംഗങ്ങളുടെ സ്മരണയ്ക്കായിട്ടാണ് പുഷ്പചക്രം അർപ്പിച്ചത് ദിനാഘോഷത്തിന്റെ ഭാഗമായി നാവിക കേന്ദ്രത്തിന്റെ യുദ്ധകപ്പലുകൾ വർണ്ണാഭമായി അലങ്കരിച്ചിട്ടുണ്ട്

ആർ ക്യാമ്പിൽ പരിശീലനത്തിന്റെ ഭാഗമായി ഗ്രനേഡ് നീക്കുന്നതിനിടയിൽ പൊട്ടിത്തെറിയുണ്ടായി ഒരു പൊലീസ് ഉദ്യോസ്ഥൻ ഉൾപ്പെടെ രണ്ട് പേർക്ക് ഗുരുതര പരിക്ക് സിവിൽ പൊലീസ് ഓഫീസറായ സുധാകരൻ ക്യാമ്പിലെ ജീവനക്കാരനായ പവിത്രൻ എന്നിവർക്കാണ് മുഖത്ത് പരിക്കേറ്റത്

കോഴിക്കോട് ആക്രമണം കോഴിക്കോട് കൊയിലാണ്ടിയിൽ വിവാഹ ചടങ്ങിനായി പോകുകയായിരുന്ന യുവാവ് സഞ്ചരിച്ച കാറിന് നേരെയുണ്ടായ ആക്രമണസംഭവത്തിൽ കൊയിലാണ്ടി പൊലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി ഇന്നലെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് വിവാഹം സംബന്ധിച്ച പ്രശ്നമാണ് സംഘർഷത്തിലേക്ക് നയിച്ചതെന്ന് പൊലീസ് പറഞ്ഞു

അവസാന് ഓവറുകളിലെ രവീന്ദ്ര ജഡേജയുടെ വ്വെടിക്കെട്ട് ബാറ്റിംഗാണ് ഇന്ത്യയ്ക്ക് മികച്ച സ്കോർസമ്മാനിച്ചത്

എന്നാൽ ശിഖർ ധവാനും വിരാട് കോഹ്ലിക്കും എം

പാണ്ഡേയ്ക്കും രണ്ടക്കം കടക്കാൻ കഴിഞ്ഞില്ല മൂന്ന് കളികളുള്ള പരമ്പരയിലെ രണ്ടാം മത്സരം മറ്റന്നാൾ സിഡ്നിയിൽ നടക്കും

എൽ ഫുട്ബാളിൽ ഇന്ന് ചെന്നൈയിൻ എഫ് സി ബംഗളൂരു എഫ്

റിഹേഴ്സൽ ക്സാസ് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ന് പോസ്റ്റിംഗ് ഓർഡർ ലഭിച്ച പ്രിസൈഡിങ് ഓഫിസർ ഫസ്റ്റ് പോളിങ് ഓഫിസർ എന്നീ ഉദ്യോഗസ്ഥർക്ക് നാളെ രാവിലെ ഒൻപതു മണിക്ക് കോട്ടൺ ഹിൽ സ്കൂളിൽ റിഹേഴ്സൽ ക്ലാസ് സംഘട്ടിപ്പിക്കു്മെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ അറിയിച്ചു

കോവിഡ് മഹാമാരിയുടെ പശ്ചാത്ത്ലത്തിൽ റാലികളും പൊതുയോഗങ്ങളും നടത്താൻ കഴിയാത്ത പശ്ചാത്തലത്തിലാണ് വെബ് റാലി സംഘടിപ്പിക്കാൻ എൽഡിഎഫ് തീരുമാനിച്ചത്

സഖ്യം വേണ്ടെന്നതാണ് യുഡി്എഫ് തീരുമാനമെന്നും അദ്ദേഹം കാസർകോട് പറഞ്ഞു പ്രാദേശിക നീക്കുപോക്കുകൾ അനുവദിച്ചിട്ടുണ്ടെന്ന യുഡിഎഫ് കൺവീനർ എം

കാസർഗോഡ് കളക്ടർ കാസർഗോഡ് ജില്ലയിലെ ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ വോട്ടർമാർക്കിടയിൽ മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലുള്ള നോട്ടീസ് അച്ചടിച്ചിറക്കി പ്രചാരണം നടത്തിയതിന് ഒമ്പത് പേർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു